വിവിധയിടങ്ങളിൽ സ്ഫോടനപരമ്പരകൾ നടത്താൻ ഐ എസ് ഐ എസ്സിന്റെ പുതിയ വിഭാഗമായ ഹർകത് ഉൽ ഹർബ് ഇ ഇസ്താം എന്ന സംഘടന സജ്ജമായിരിക്കുകയാണെന്ന് സൂചന ലഭിച്ചതായി എൻ ഐ എ ഇൻസ്പെക്ടർ ജനറൽ അലോക് മിത്തൽ ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു

അറസ്റ്റിലായവർ വിദൂര നിയന്ത്രിത ബോംബുകൾ നിർമ്മിക്കുകയായിരുന്നു വെന്ന് സംശയിക്കുന്നതായി ഇൻസ്പെക്ടർ ജനറൽ പറഞ്ഞു

മനുഷ്യകടത്ത് നിയന്ത്രണ സംരക്ഷണ പുനരധിവാസ ബിൽ നാഷൺ കൌൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഭേദഗതി ബിൽ എന്നിവ നാളെ രാജ്യസ പരിഗണിക്കും

റഫേൽ ഇടപാട് കാവേരി നദിക്ക് കുറുകെയുള്ള അണക്കെട്ട് നിർമ്മാണം ആന്ധ്രാപ്രദേശിന് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ എന്നീ വിഷയങ്ങളിൽ ഇരുസഭകളും തുടർച്ചയായി ബഹളങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു

നിയമ മന്ത്രി രവിശങ്കർ പ്രസാദാണ് ബിൽ അവതരിപ്പിക്കുന്നത് മുസ്തീം സമുദായത്തിൽ നിലനിൽക്കുന്ന മുത്ത്ലാഖ് നിയമവിരുദ്ധമാക്കുന്നതാണ് ബിൽ പെട്ടെന്നുള്ള തലാഖ് ചൊല്ലൽ മൂന്ന് വർഷം വരെ തടവ്ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമായി് ബില്ലിൽ വൃവസ്ഥ ചെയ്യുന്നു

സംസ്ഥാനത്ത് ബി ജെ പി ഗവൺമെന്റിന്റെ ഒന്നാം വാർഷിക ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി എത്തുന്നത് ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ പ്രതിപാദിക്കുന്ന രേഖ പ്രധാനമന്ത്രി ചടങ്ങിൽ പ്രകാശനം ചെയ്യുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു കാൺഗ്ര ജില്ലയിലെ ധരം ശാലയിൽ പൊതു റാലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി ആശയ വിനിമയം നടത്തും

മുഖ്യമന്ത്രിയായി വീ ും അധികാരത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രിയുമായുള്ള ശ്രീ റാവുവിന്റെ ആദ്യകൂടിക്കാഴ്ചയാണിത് സംസ്ഥാനത്തെ വിവിധ വികസനപ്രവർത്തനങ്ങളെ കുറിച്ച് ശ്രീ ചന്ദ്രശേഖർ റാവു പ്രധാനമന്ത്രിയുമായി ചർച്ചിനൂടത്തി

താപനില ഗഗണ്യമായി താഴ്ന്നതിനെ തുടർന്ന് ജലാശയങ്ങളും ജലവിതരണ പൈപ്പുകളും തണുത്ത് ഉറഞ്ഞ നിലയിലാണ്

കാർഗിൽ ശ്രീനഗർ കാസിഗു ് കുപ്പാര വടക്കൻ കാശ്മീർ എന്നിവിടങ്ങളും അതിശൈത്യത്തിന്റെ പിടിയിൽ മഞ്ഞു മൂടിയ അവസ്ഥയിലാണ് വടക്കൻ കാശ്മീരിലെ ഗുൽമാർഗ് ആണ് ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്

കറാച്ചിയിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം

പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രസിഡന്റ് ആരിഫ് ആൽപ്പി മറ്റ് മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ അബീദിയുടെ ്മരണത്തെ അപലപിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് അബീദിയുടെ അംഗരക്ഷനെ അറസ്റ്റ് ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു

വീ ും സുനാമിക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ തീരദേശ മേഖലകളിൽ നിന്ന് മാറി താമസിക്കണമെന്ന് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി

ഉത്തരവാദിത്തമുള്ള പൌരന്മാരായി മാറുവാൻ ജനങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തേ തു െന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ ഒരു അവാർഡ്ദാന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി സദ്ഭരണം അഴിമതിയും വിവേചനവും ഇല്ലാതാക്കുമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു കാലാവസ്ഥ വൃതിയാനം മനുഷ്യ നിർമ്മിതിയായ ഒരു പ്രശ്നമാണെന്നും ഇത് പ്രകൃതിയേയും വരും തലമുറയേയും സാരമായി ബാധിക്കുന്നുവെന്നും ശ്രീ വെങ്കയ്യ നായിഡു പ്രസ്താവിച്ചു

കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർക്കാണ് രാജസ്ഥാന്റെ ചുമതല

ഗുജറാത്തിലെ ബി ജെ പി ്യേതാവ് ഗോവർദ്ധൻ ്ഛതാപിയ പാർട്ടി വൈസ് പ്രസിഡന്റ് ദുഷ്യന്ത് ഗ്നൌത്ം നരോട്ടം മിശ്ര എന്നീ മൂന്നുപേർക്കാണ് ഉത്തർപ്രദേശിന്റെ ചുമതല

ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്തി ഇന്ത്യയുടെ ര ് വിക്കറ്റുകൾ തുടക്കത്തിലേ നഷ്ടപ്പെട്ടു

പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട തങ്ക അങ്കി ഘോഷയാത്ര ഇന്ന് സന്നിധാനത്ത് എത്തി

മണ്ഡലപൂജയ്ക്ക് ശേഷം നാളെ രാത്രി ഹരിവരാസനം ചൊല്ലി് നട അടയ്ക്കും

ഹിസ്ബുൽ കമാൻഡർ റിയാസ് നായ്കോയുടെ സ്വദേശമായ ഗ്രാമത്തിനു സമീപമായിരുന്നു താവളം പൂർവാമ ജില്ലയിലുള്ള ഈ വനപ്രദേശം രാവിലെ തന്നെ സൈനൃം വളഞ്ഞിരുന്നതായി പൊലീസ് വൃത്തങ്ങൾ പറഞ്ഞു

വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിക്കുന്നതിനെതിരെയാണ് പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കിയത്

ആജീവനാന്ത സംഭാവനയ്ക്കുള്ള അവാർഡ് പ്രൊഫഷണൽ അമച്ചർ ഫോട്ടോഗ്രഫർമാർക്കുള്ള വെപ്പേറെ അവാർഡുകൾ എന്നിങ്ങനെ മൂന്നു വിഭാഗങ്ങളിലായാണ് പുരസ്ക്കാരങ്ങൾ നൽകുന്നത്